മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനിലാണ് യോഗം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ സർവ്വകക്ഷിയോഗം തീരുമാനമെടുത്തേക്കും വോട്ടെണ്ണൽ ദിവസം സംസ്ഥാനത്ത് സമ്പൂർണ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന ആവശ്യം യോഗം ചർച്ച ചെയ്യും യോഗതീരുമാനം പരിഗണിച്ചായിരിക്കും മെയ് രണ്ടിന് ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന ഹർജികളിൽ ഹൈക്കോടതിയുടെ തീരുമാനം

ഇന്നലെ നിയന്ത്രണങ്ങളോട് ജനങ്ങൾ പൂർണമായി സഹകരിച്ചുവെന്ന് പൊലീസ് അറിയിച്ചു അവശ്യ സേവനങ്ങൾ തടസപ്പെട്ടില്ല അനാവശ്യ യാത്രകൾ പൊലീസ് പൂർണമായി തടഞ്ഞു അവശ്യസേവനം ലഭ്യമാക്കുന്ന കേന്ദ്രങ്ങളിൽ പലയിടത്തും പൊലീസ് ബോധവത്ക്കരണവും മാസ്ക് വിതരണവും നടത്തി കൂടുതൽ വിവരങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയ്സ് ദേഴ സംസ്ഥാനത്ത് കൊവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വാരാന്ത്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്നലെ ലോക്ഡൌണിന് സമാനമായിരുന്നു പൊതുഗതാഗതം അവശ്യസേവനങ്ങൾ എന്നിവയൊഴികെ മേഖലകളിൽ നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചു നിയന്ത്രണങ്ങൾ ഇന്നും തുടരും വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവ ഉൾപ്പെടെ അവശ്യകാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കൈവശം കരുതണം ഹോട്ടലുകൾക്കും റസ്റ്റോറന്റുകൾക്കും ഹോം ഡെലിവറിക്ക് മാത്രമാണ് അനുമതി അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം തുറക്കാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

ദ്ദേദ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം റെംഡിസിവർ മരുന്ന് വിഹിതം വർധിപ്പിച്ചു

കണ്ണൂർ ആലപ്പുഴ പാലക്കാട് കൊല്ലം ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ രോഗബാധിതരെ കണ്ടെത്തി

പെട്രോൾ പമ്പുകൾ മെഡിക്കൽഷോപ്പുകൾ പഴം പച്ചക്കറി പലചരക്ക് കടകൾ ഒഴികെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രമെ പ്രവർത്തിക്കാവൂ

ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൊറോണ കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്

കേരളബാങ്ക് അഞ്ച് കോടി രൂപയും സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് രണ്ട് കോടി രൂപയും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഓരോ കോടി രൂപയും നൽകും പ്രാഥമിക വായ്പാ സംഘങ്ങൾ രണ്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയും നിധിയിലേക്ക് സംഭാവന നൽകും സഹകരണ ജീവനക്കാർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓരോ ദിവസത്തെ ശമ്പളവും നൽകുമെന്ന് മന്ത്രി തിരിവനന്തപുരത്ത് ഓൺലൈൻ യോഗത്തിൽ അറിയിച്ചു

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും ന്യൂസ് വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്പിലും മൻ കി ബാത്ത് ലഭ്യമാണ് ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യു ട്യൂബ് ചാനലുകളിലും പരിപാടി കേൾക്കാം പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് പിന്നാലെ ആകാശവാണിയിൽ പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടാവും

മെയ് ജൂൺ മാസങ്ങളിൽ അന്ത്യോദയ അന്നയോജനയിലെയും മറ്റ് മുൻഗണനാ വിഭാഗങ്ങളിലെയും ഓരോരുത്തർക്ക് അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യങ്ങൾ നൽകാനാണ് തീരുമാനം

രാജ്യത്തെ പ്രത്യേക കോവിഡ് സാഹചര്യം മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഈ പ്രഖ്യാപനം നടത്തിയത്

രുദ ഐപി എൽ ക്രിക്കറ്റിൽ ഇന്നലെ മുംബൈയിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചു

ആദ്യമത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ചെന്നൈ സൂപ്പർകിംഗ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും രണ്ടാം മത്സരത്തിൽ ചെന്നൈയിൽ ഏഴരയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രെട ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ കേന്ദ്രീയവിദ്യാലയം അടുത്ത അധ്യയന വർഷം തന്നെ തുറക്കാൻ ജില്ലാ ഭരണകൂടം ഊർജ്ജിത ശ്രമം തുടങ്ങി ഇതിന്റെ ഭാഗമായി സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് താൽക്കാലിക കെട്ടിടം കണ്ടെത്തി തൊടുപുഴ എ

ജെ അബ്ദുൾ കലാം ഹയർ സെക്കണ്ടറി സ്കൂളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ കെട്ടിടത്തിൽ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം തൽക്കാലം തുടങ്ങാനാണ് ആലോചന ദേദ വയനാട്ടിലെ വനാതിർത്തിയിലെ ഗ്രാമങ്ങളിൽ കുരങ്ങുപനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയും നാഷണൽ ഹെൽത്ത് മിഷനും കുരങ്ങുപനി സ്ഥിരീകരിച്ച തിരുനെല്ലി പഞ്ചായത്തിലും കുരങ്ങുപനി ഭീഷണി നേരിടുന്ന ചെക്കുനി ഐക്കോലി കൊട്ടിയൂർ കാരമ്മൽ പ്രദേശങ്ങളിലുമാണ് ബോധവത്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ദേദ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടത്തും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആണ് പരിപാടി രുര കോഴിക്കോട് മെഡിക്കൽ കോളജിൽ നിന്ന് തലക്കുളത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തുടർചികിത്സയ്ക്കയച്ച രോഗിക്ക് രണ്ട് മണിക്കൂർ ആംബുലൻസിൽ കഴിയേണ്ടി വന്ന സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് വാഹനാപകടത്തിൽ കാലിന് പരിക്കേറ്റ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്